എൽ മത്സരങ്ങൾ നാളെ ചെന്നൈയിൽ ആരംഭിക്കും വാർത്തകൾ വിശദമായി രാജ്യത്ത് കോവിഡ് വ്യാപനം വർധിച്ചുവരുന്ന സാഹചര്യ ത്തിൽ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന്

രുര കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് അർഹരായ നൂറോളം പേർ ജോലിചെയ്യുന്ന ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഞായറാഴ്ച മുതൽ കോവിഡ് വാക്സിൻ നൽകുന്നതിന് കേന്ദ്രം അനുമതി നൽകി ഇതുസംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ആരോഗ്യ സെക്രട്ടറിമാർക്കും കത്തയച്ചു സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട് തൊഴിൽസ്ഥലത്ത് വാക്സിനേഷന് സംസ്ഥാനങ്ങൾക്ക് നടപടി സ്വീകരിക്കാമെന്നും അദ്ദേഹം കത്തിൽ അറിയിച്ചു ദ്ദേ കോവിഡ് വാക്സിൻ ക്ഷാമം സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും ഈ മഹാമാരിയെ ചെറുക്കാൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

കൊവിഡിന്റെ രണ്ടാം തരംഗം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറി തിരുവനന്തപുരത്ത് വിളിച്ച കോർ കമ്മറ്റി യോഗത്തിലാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ സംസ്ഥാനത്ത് പോലീസ് പരിശോധന ശക്തമാക്കും ഇന്നു മുതൽ കോവിഡ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി നടപ്പാക്കാൻ പൊലീസിനു സംസ്ഥാന പൊലീസ് മേധാവി അടിയന്തര നിർദ്ദേശം നൽകി മാസ്ക് കൃത്യമായി ധരിക്കൽ സാമൂഹിക അകലം പാലിക്കൽ എന്നിവ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പൊലീസ് കർശന നടപടി സ്വീകരിക്കും

കോഴിക്കോടും എറണാകുളത്തും അഞ്ഞൂറിന് മുകളിലാണ് രോഗികൾ

ദേദ വിദ്യാർത്ഥികൾ പരീക്ഷകളെ ഭയക്കേണ്ടതില്ലെന്നും അവ ആഘോഷമാക്കി മാറ്റണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പരീക്ഷാഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് ശാന്തവും ശുദ്ധവുമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി നടത്തിയ പരീക്ഷാപേ ചർച്ചയിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു എല്ലാ മാനസിക സംഘർഷങ്ങളും പരീക്ഷാ ഹാളിന് പുറത്ത് ഉപേക്ഷിക്കണമെന്നും ചോദ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നിമിഷ അരുൺ ദേദ കാര്യങ്ങൾ ഓർമ്മിച്ച് വെയ്ക്കുന്നതിൽ താൻ ശരാശരിയാണെന്ന ചിന്ത വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാനസിക സംഘർഷങ്ങളും ഉത്കണ്ഠയും ഒഴിവാക്കുന്നതിന് മാർഗങ്ങളും ആദ്യമായി വെർച്വലായി സംഘടിപ്പിച്ച പരീക്ഷാപേ ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കുവെച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷയെ ജീവിതത്തിന്റെ അവസാനമായി കരുതരുത് അടുത്ത തവണ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രയാസമേറിയ വിഷയങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കണം അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും വേണം കടുപ്പമേറിയ വിഷയങ്ങൾ പഠിക്കുന്നത് രാവിലെയാക്കണം ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ടൈം മാനേജ്മെന്റിനെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് മാർഗ നിർദ്ദേശം നൽകണമെന്ന് അധ്യാപകരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ക്രിയാത്മക പ്രവർത്തനങ്ങൾ ജനങ്ങളെ പുതിയ തലങ്ങളിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ തുടങ്ങും

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ

ഗൾഫിലും ലക്ഷദ്വീപിലും ഒൻപത് വീതം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്

പാനൂരിലെ മുസ്ലീംലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്നലെ രാത്രി പ്രദേശത്ത് അക്രമ സംഭവങ്ങളുണ്ടായി

കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പൊലീസ് അറിയിച്ചു

നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ബംഗളൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലാണ് ആദ്യമത്സരം

മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ബംഗളൂരു എന്നീ ആറ് വേദികളിലാണ് മത്സരം ദര ഷൊർണ്ണൂർ ജംഗ്ഷൻ യാർഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നത്തെ കണ്ണൂർ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവെ അറിയിച്ചു കണ്ണൂർ ആലപ്പുഴ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് ഷൊർണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും ആലപ്പുഴ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ ഷൊർണ്ണൂരിൽ നിന്നായിരിക്കും പുറപ്പെടുക ദേദ പാത അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പാലക്കാട് തിരുച്ചിറപ്പള്ളി സ്പെഷ്യൽ ട്രെയിൻ ശനിയാഴ്ച ഈറോഡിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നും തിരുച്ചിറപ്പള്ളി പാലക്കാട് സ്പെഷ്യൽ ട്രെയിൻ ഈറോഡിൽ നിന്നായിരിക്കും പുറപ്പെടുകയെന്നും റെയിൽവെ അറിയിച്ചു ഈ ട്രെയിൻ തിങ്കളാഴ്ച പാലക്കാടിനും പോത്തന്നൂരിനും ഇടയിൽ സർവീസ് നടത്തില്ലെന്നും ചൊവ്വാഴ്ച പോത്തന്നൂർ മുതൽ കാരൂർ വരെ മാത്രമായിരിക്കും സർവീസെന്നും അറിയിപ്പിൽ പറയുന്നു

പോത്തന്നൂർ ജംഗ്ഷനിൽ ഇവയ്ക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ദേദ ഡോളർ കടത്തു കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇന്ന് ചോദ്യം ചെയ്തേക്കും

എ

ദ്ദേ സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നും നാളെയും കോഴിക്കോട്കണ്ണൂർ കാസർകോഡ് വയനാട് മലപ്പുറം ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മൽസ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിപ്പ് നൽകി കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി കനത്ത മഴ ലഭിച്ചു ശക്തമായ ഇടി മിന്നലോടെ പെയ്ത മഴ ഒരു മണിക്കൂറോളം നീണ്ടു

തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അയ്യപ്പനെ ആർക്കും വേണ്ടാതായി

ദ്ദേ അസംഘടിതമേഖലയിലെ കാർഷികേതര സംരംഭങ്ങളെ കുറിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നടത്തുന്ന ദേശീയ സാമ്പിൾ സർവ്വേ ഈ മാസം തുടങ്ങും ഗാർഹിക സംരംഭങ്ങളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും വിശദ വിവരങ്ങൾ ശേഖരിക്കും അസംഘടിത മേഖലയെ സംബന്ധിച്ച വാർഷിക സർവേയുടെ രണ്ടാം റൌണ്ടാണിത് സർവേ അടുത്ത വർഷം മാർച്ച് വരെ തുടരും ദ്ദേ ആദിവാസി സമൂഹങ്ങളുടെ ആരോഗ്യ പോഷക നിലവാരം ഉയർത്തുന്നതിനായി വിവിധ ഗവൺൺമെന്റ് ഏജൻസികളുടെയും സംഘടനകളുടെയും ശ്രമങ്ങളെ സംയോജിപ്പിക്കുന്ന അനാമയ ഗോത്ര ആരോഗ്യ സഹകരണ പരിപാടിയ്ക്ക് തുടക്കമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർധനും ഗോത്രകാര്യ മന്ത്രി അർജുൻ മുണ്ടയും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു